ത ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യ നൽകുന്ന പിന്തുണയ്ക്ക് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അഭിനന്ദനം

പരോക്ഷ വിപണി എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ സക്രിയ നിർമ്മാണ ഹബ്ബാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആത്മ നിർഭർ ഭാരത് എന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു ഇന്ത്യ അമേരിക്ക തന്ത്രപര പങ്കാളിത്ത ഫോറത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യം മനുഷ്യ കേന്ദ്രീകൃതമായ വികസനം എന്ന പുതിയ കാഴ്ചപ്പാടിന്റെ അനിവാര്യത ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആഗോള വിതരണ ശൃംഖല മൂല്യത്തിനും വിശ്വാസത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകണമെന്ന ആശയത്തിനും പ്രാമുഖ്യം നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

എസ് വാരം പുതിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് അഞ്ച് ദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്

എസ് ഓഫീസർമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കും മുസോറിയയിലെയും ഹൈദരബാദിലെ എച്ച്

ഡി കേന്ദ്രത്തിലെയും പരിശീലനം നേരത്തെ ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട് രുമ കോവിഡ് വാക്സിൻ വരുന്നതുവരെ സാമൂഹിക അകലവും ജാഗ്രതയും സോഷ്യൽ വാക്സിനായി ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

ഓണക്കാലത്തെ സമ്പർക്ക തോത് വർദ്ധിച്ചതിനാൽ രോഗ വ്യാപനം വർദ്ധിച്ചിട്ടുണ്ടോ എന്നു മനസ്സിലാക്കാൻ ദിവസങ്ങളെടുക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്തു പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് വോയ്സ് രുമ കാലയളവിൽ പതിനായിരത്തിനും ഈ ഇരുപതിനായിരത്തിനുമിടയിൽ കോവിഡ് കേസുകൾ ഉണ്ടാകുമെന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം അതു പിടിച്ചു നിർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നാൽ രോഗ വ്യാപനത്തോത് ഉയർന്നിരിക്കുകയാണ് അടുത്ത മാസം അവസാനത്തോടെ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ ഓണത്തിന് കടകളിലും ഷോപ്പിംഗ് മാളുകളിലും നല്ലതോതിൽ നിയന്ത്രണം നടപ്പിലാക്കി എന്നാൽ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ ചില കേന്ദ്രങ്ങളിലുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി രേര കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല ഒക്ടോബർ രണ്ടിന് നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആയിരിക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ നാലു സർവകലാശാലകളുടെ വിദൂര പഠന സംവിധാനങ്ങൾ സംയോജിപ്പിച്ചായിരിക്കും നിർദ്ദിഷ്ട ഓപ്പൺ സർവകലാശാലയുടെ രൂപീകരണമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു രുമ വ്യാജ ഒപ്പ് ആരോപണം അത് ഉന്നയിച്ചവർക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തു വ്യക്തമാക്കി

വിദേശത്തായിരുന്ന ദിവസങ്ങളിൽ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെയാണ് ഫയലുകൾ പരിശോധിച്ച് ഒപ്പുവച്ചത്

മറ്റു ജില്ലകളിൽ ഇന്നലെ നൂറിൽ താഴെയാണ് രോഗബാധിതരുടെ എണ്ണം

രുമ കോട്ടയം ചന്തയിൽ ഇന്നലെ ഏഴു പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു

കോവിഡ് പരിശോധന ഇന്നും തുടരും

കൊയിലാണ്ടി ഉൾപ്പെടെ സ്ഥലങ്ങളിലും സമ്പർക്ക രോഗ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

വരും ദിവസങ്ങളിലും കർശന പരിശോധനയും നടപടികളും ഉണ്ടാവുമെന്ന് ജില്ലാ പൊലീസ് മേധാവി പറഞ്ഞു പാലക്കാട് ജില്ലയിലെ ഗോവിന്ദാപുരം ചെക്ക്പോസ്റ്റ് വഴി ഇന്നു മുതൽ അന്തർ സംസ്ഥാന യാത്രയ്ക്ക് അനുമതി നൽകി

ജില്ലയിലെ കളിക്കളങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് രുമ തൊഴിൽ ആവശ്യങ്ങൾക്ക് കാസർകോട്ടു നിന്ന് കർണ്ണാടകയിലേക്ക് ദിവസവും പോയി വരുന്നവർക്ക് പ്രത്യേക രജിസ്ട്രേഷനോ പാസോ ആവശ്യമില്ലെന്ന് ജില്ലാ കലക്ടർ ഡോ

സജിത് ബാബു അറിയിച്ചു കർണ്ണാടകയിൽ സ്ഥിരമായി താമസിക്കുകയും കാസർകോട് ജില്ലയിൽ ദിവസവും വന്ന് പോവുകയും ചെയ്യുന്നവർ മൂന്നാഴ്ചയിലൊരിക്കൽ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ ആന്റിജൻ പരിശോധനാ സർട്ടിഫിക്കറ്റ് അപ് ലോഡ് ചെയ്യണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു രെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന മാഷ് പദ്ധതിയിൽ കാസർകോട്ട് ഇനി റേഡിയോ സഹായവും ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസന്റെ റിപ്പോർട്ട്

റഷ്യൻ രാജ്യരക്ഷാ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അ ആത്മ നിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യരക്ഷാ ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം റഷ്യയെ ധരിപ്പിച്ചു

രാജു ഉദ്ഘാടനം ചെയ്തു കലയനാട് കാർഷിക വിപണിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് രണ്ട് മാസം പ്രായമായ അഞ്ച് കോഴികളെയും അഞ്ച് കിലോ കോഴിത്തീറ്റയും മരുന്നും കോഴിക്കൂടുമാണ് ഓരോ ഗുണഭോക്താവിനും നൽകിയത് പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച ഫാം ഉടമ മത്തായിയുടെ മൃതദേഹം ഇന്ന് വീണ്ടും പോസ്റ്റുമോർട്ടം നടത്തും

ബി ഐ കേസ് ഏറ്റെടുത്തതിനെത്തുടർന്നാണ് നടപടി

രുമ പാലാരിവട്ടം പാലം പുതുക്കിപ്പണിയാൻ ഉടൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ അപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പാലം പുനർ നിർമ്മാണം വൈകുന്നത് കൊച്ചി നഗരത്തിൽ വൻ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്ന് കാണിച്ചാണ് ഗവൺമെന്റ് അപേക്ഷ നൽകിയത് രുമ ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചാർട്ടേഡ് എണ്ണക്കപ്പലിൽ ഉണ്ടായ തീപിടുത്തം നിയന്ത്രിക്കാൻ കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് കപ്പലുകൾ അയച്ചു കുവൈറ്റിൽ നിന്ന് മാലദ്വീപിലേക്ക് പോവുകയായിരുന്ന ന്യൂ ഡയമണ്ട് എന്ന കപ്പലിനാണ് ഇന്നലെ രാവിലെ തീ പിടിച്ചത് കപ്പലിൽ ക്രൂഡ് ഓയിലിന്റെ വൻ ശേഖരമുണ്ടെന്നാണ് റിപ്പോർട്ട് രുമ രാഷ്ട്ര ഭാഷാ വേദി നാളെ കോഴിക്കോട്ട് നടത്താനിരുന്ന അധ്യാപക ദിനാഘോഷ പരിപാടികൾ മുൻ രാഷ്ട്രപതിയുടെ നിര്യാണത്തെത്തുടർന്ന് റദ്ദാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു ഹിന്ദി അധ്യാപകർക്ക് നൽകി വരുന്ന വിഭിന്ന സേവാ പുരസ്കാരം ഈ വർഷം ഉണ്ടാവില്ലെന്നും വേദി അറിയിച്ചു

നെഞ്ച് വേദനയുമായി സ്വകാര്യ ആശുപത്രിയിലെത്തിയ രോഗിക്ക് അടിയന്തര ചികിത്സ നൽകാതെ ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ച അധികൃതർക്കെതിരെ ദുരന്ത നിവാരണ നിയമ പ്രകാരം നടപടിയെടുക്കുമെന്ന് കലക്ടർ അറിയിച്ചു